പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിലെ ന് കോവിഡ് സന്നദ്ധ സംഘടനാ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തും ഇന്ത്യാ ഗ്ലോബൽ വീക്ക് നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ഏജൻസികൾ സമഗ്രമായി അന്വേഷിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ

കുടുംബത്തിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ് ഒരു കിലോ കടല പരിപ്പ് എന്നിവ സൌജന്യമായി ലഭിക്കുമെന്ന് അറിയിച്ച് മന്ത്രിസഭാ തീരുമാനങ്ങൾ കേന്ദ്രമന്തി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു നവംബർ അവാസനം വരെ പദ്ധതി നീട്ടാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിത്

നരേന്ദ്രമോദിയാണ് രാജ്യത്ത് പാവപ്പെട്ട ഒരാളും പട്ടിണി കിടക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കിയിരുന്നു മൺസൂൺ കാലത്തും ഉത്സവ സമയത്തും സൌജന്യ ഭക്ഷ്യധാന്യം എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടം ലോക്ഡൌണിന് പിന്നാലെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു

ലോക്ഡൌൺ സമയത്ത് സ്രിന്ന്ദ്ധ പ്രവർത്തകർ വാരാണസി ജില്ലാ ഭരണകൂടത്തിന് വലിയ്ക്സ്ഹായമാണ് നല്കിയത്

ഇതിനുപുറമേ മുഖാവരണങ്ങളും സാനിറ്റൈസറുകളും വിതരണം ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നു ദിവസത്തെ വെർച്ചൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ആത്മ നിർഭർ ഭാരത് പദ്ധതിയുടെ അവതരണവും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്

എല്ലാ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയ്ക്ക് ഒഴിഞ്ഞുനിൽക്കാനാകില്ലെന്നും കേന്ദ്ര മന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു

കൃഷ്ട്രമുമുണ്ടാകാത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിടു ന്നൂത്തെന്ന് ബിജിപി ദേശീയ ജനറൽ സെക്രട്ടറി പി

പ്രി വിശദാംശങ്ങളുമായി ്ലദേവിപ്രിയ വോയിസ് കോവിഡ് പ്രത്യേക സാഹചരൃത്തിലും സാധാരണക്കാരുടെ ക്ഷേമത്തിന് സർക്കാർ ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പറഞ്ഞു

അടുത്ത വർഷം മാർച്ചോടെ എല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയിൽ ചേരും പദ്ധതി കൂടിയേറ്റ തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ശ്രീ മുരളീധർ റാവു പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാളെ വൈകിട്ട് അഞ്ച് മണി മുതൽ തീരുമാനം പ്രാബലൃത്തിൽ വരുത്തി സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു

ഖാദിയ്ക്കു പുറമേ സിൽക്ക് മുഖാവരണങ്ങളും ഓൺലൈനിലൂടെ ലഭിക്കും